വാക്സിനേഷൻ പ്രവർത്തൂനം വേഗത്തിലാക്കാൻ മന്ത്രി കെ

ശൈലിജ നിർദ്ദേശം നൽകി

സംസ്ഥാനത്തെ ക്ടിയ്ർ സംഘങ്ങളുടെ എല്ലാ ബാധ്യതയും സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി ടി

തോമസ് ഐസക്

പാലാ സീറ്റ് എൻ

പിക്ക് നൽകില്ലെന്ന് എൽ

എഫ് നേതൃത്വം പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി ഏ

ശശീന്ദ്രൻ

കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായ കോവിഡ് പരിശോധനയ്ക്ക് നാളെ തുടക്കമാകും

കൊച്ചി റിഫൈനറിയുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുക്കാനാണ് എത്തുക ഇന്ന് രാവിലെ അസം സന്ദർശിച്ച പ്രധാനമന്ത്രി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടു

ശൈലജ രണ്ടാംഘട്ട കോവിഡ് വാക്സിനേഷൻ തുടങ്ങേണ്ട സമയം അടുത്തതിനാൽ ആരോഗ്യ പ്രവർത്തകർക്കുള്ള വാക്സിനേഷൻ വേഗത്തിലാക്കാൻ മന്ത്രി കെ

വാക്സിൻ സ്വീകരിക്കുന്നതിനായി ക്ടോപ്പിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ വാക്സിനെടുക്കുസ്തിനുള്ള തീയതി സ്ഥലം എന്നിവയടങ്ങുന്ന മൊബ്രൈൽ എത്തിച്ചേരേണ്ടതാണ്

ആദ്യഘട്ടത്തിൽ സർക്കാർ സ്ഥകാര്യ മേഖലയിലെ ആരോഗൃ പ്രവർത്തകർ ആശ അംഗൻവാടി പ്രവർത്തകർ എന്നിവരടക്കം മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കാണ് കുത്തിവയ്പ്പ് നൽകുന്നത് രണ്ടാംഘട്ട വാക്സിനേഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ആരോഗ്യ പ്രവർ ത്തകർ എല്ലാവരും വാക്സിൻ എടുക്കണം

കമ്മറ്റികൾ പുനസംഘടിപ്പിച്ചിട്ടില്ലാത്ത ഗ്രാമ പഞ്ചായത്തുകൾ അടിയന്തിരമായി വാർഡ് തല കമ്മറ്റികൾ രൂപീകരിക്കണം വിശദാംശങ്ങളുമായി ബിന്ദു വിനോദ് തദ്ദേശ സ്ഥാപനപരിധിയിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുന്നതിൽ ജനങ്ങളുടെ ഭാഗത്ത് വിമുഖതയോ അലംഭാവമോ ഉണ്ടായാൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മാർഗനിർദേശത്തിൽ പറയുന്നു പോലീസ് സഹായം ആവശ്യമായി വന്നാൽ രേഖാമൂലം സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ അറിയിക്കണം സ്കൂളുകൾ സിനിമ തീയറ്ററുകൾ മാളുകൾ ഓഡിറ്റോറിയങ്ങൾ മാർക്കറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കോവിഡ് മാനദണ്ഡം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം വിവാഹം മരണാനന്തര ചടങ്ങുകൾ പൊതുചടങ്ങുകൾ മറ്റ് ഒത്തുചേരൽ പൊതു സ്വകാര്യ വാഹനയാത്രകൾ എന്നിവയിൽ അനുവദനീയമായ എണ്ണം ആളുകൾ മാത്രമെ പങ്കെടുക്കുന്നുള്ളു എന്ന് ഉറപ്പാക്കണം

പ്രദേശവാസികളെ ഉൾപ്പെടുത്തി വാർഡുതല കമ്മറ്റികൾ സമൂഹ് മാർച്ചമ കൂട്ടായ്മക്ക് രൂപം നൽകി മുൻകരുതൽ നൽകണമെന്നു് ഫ്ലീർദേശമുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി തോമസ് ഐസക് കയർ സംഘങ്ങളുടെ എല്ലാ ബാധ്യതയും സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഡോ ടി

ഇക്കാരൃം കേരളബാങ്കുമായി ചർച്ച ചെയ്ത് നടപ്പാക്കും മുടങ്ങിയ പി എഫ് സർക്കാർ അടയ്ക്കും സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ ന്യൂമോഡൽ കയർ സൊസൈറ്റിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കയർ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കയർ ഭൂവസ്ത്ര സെമിനാർ ഉദ്ഘാടനം കോഴിക്കോട് പേരാമ്പ്രയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി

മേള പ്രതിനിധികൾ വോളന്റിയർമാർ ഡ്യൂട്ടി സ്റ്റാഫ് തുടങ്ങിയവർക്കാണ് ചലച്ചിത്ര അക്കാദമി ടെസ്റ്റിനുള്ള സൌകര്യം ഒരുക്കുന്നുത് നാളെ മുതൽ ഈ മാസം പത്തുവരെ ടെസ്റ്റ് തുടരും

ശശീന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു എൻസിപി നേതാവ് പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രിയുമായി ദീർഘനേരം സംസാരിച്ചിരുന്നതായും മന്ത്രി പറഞ്ഞു കേരളത്തിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞതായും ഇതു സംബന്ധിച്ച് തിയ്യതി നിശ്ചയിച്ചിട്ടില്ലെനും മന്ത്രി വൃക്തമാക്കി വിജയരാഘവൻ കോൺഗ്രസിന് രാഷ്ട്രീയ മാന്യത നഷ്ടപ്പെട്ടുവെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി എ

മുഖ്യമന്ത്രി പിണറായി വിജയനെ വൃക്തി ഹത്യനടത്തുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മാനൃതയും നന്മയും നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗുമായുള്ള യുഡിഎഫിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു

സുധാകരൻ കേരള ബാങ്കിൽ ദിവസവേതനത്തിലെടുത്ത്വരെ സ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻമാറണമെന്നും അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു

സംഭവത്തിൽ മന്ത്രി എം

മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ ജെ മേഴ്സിക്കുട്ടി അമ്മ ടി എം തോമസ് ഐസക് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത്

മന്ത്രിമാരായ എ

ബാലൻ കെ കൃഷ്ണൻ കുട്ടി പി

പാലക്കാട്ട് ചിറ്റൂർ ആലത്തൂർ താലൂക്കുകളുടെ അദാലത്ത് നാട്ട് ഈ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും പ്രകിക്കറ്റ് ചെന്നൈ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ പടുകൂറ്റൻ ലക്ഷ്യമുയർത്തി ഇംഗ്ലണ്ട്

മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ രണ്ട് വിക്കറ്റ് നഷ്ടമായി രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് പുറത്തായത്

ഇന്നലെ വൈകുന്നേരമാണ് സംഭവം

നഗരത്തിനടുത്ത് പൂളക്കാട് ഇന്ന് പുലർച്ചെയാണ് സംഭവം അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊലപാതക കാരണം വൃക്തമല്ലെന്നു പോലീസ് അറിയിച്ചു

നാളെ സ്റ്റേഡ്ടിയം നാടിന് സമർപ്പിക്കും

ജയരാജൻ പൊതുമേഖലാ സ്ഥാപനം ഓട്ടോക്കാസ്റ്റ് ലിമിറ്റഡിൽ വൈദ്യുത വാഹന ചാർജ്ജിംഗ് സ്റ്റേഷന്റെയും ഫൌണ്ടറി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയിലെ യന്ത്ര സാമഗ്രികളുടെയും പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് മന്ത്രി ഇപി ജയരാജൻ നിർവഹിക്കും ഓട്ടോക്കാസ്റ്റിൽ ആരംഭിക്കുന്ന രണ്ട് മെഗാവാട്ട് സൌരോർജ്ജ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും ഇതോടൊപ്പം നടക്കും

പുതുതായി ആരംഭിക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം ആരോഗ്യ വകുപ്പ് മന്ത്രി കെ

മന്ത്രി എ

ട്രെയിൻ സർവ്വീസ് ഇരിഞ്ഞാലക്കുട പുതുക്കാട് കറുകുറ്റി സെക്ഷനുകളിൽ ട്രാക്ക് സുരക്ഷാ അറ്റകുറ്റപണികൾ നടക്കുന്നതിനാൽ ചെന്നൈ എഗ്മോറിൽ നിന്ന് ഫെബ്രുവരിപുറപ്പെടുന്ന ഗുരുവായൂർ പ്രതിദിന സ്പെഷ്യൽ ട്രെയിൻ എറണാക്കുളം ജംഗ്ഷൻ വരെ മാത്രമാവും സർവീസ് നടത്തുക

്മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന കോഴ്സാണിത്